വായു ചുഴലിക്കാറ്റിന്റെ തിരിച്ചുവരവിനെ തുടർന്ന് ന് ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു

ഈജിപ്ത് മുൻ പ്രസിഡന്റ് മുഹമ്മദ് മുർസി കോടതിയിൽ കുഴഞ്ഞുവീണു മരിച്ചു

ഏഴ് വിക്കറ്റിന് വെസ്റ്റിന്റീസിനെ പരാജയപ്പെടുത്തി

മസ്തിഷ്ക ജൂരം റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ ് ഇന്നലെ ഡൽഹിയിൽ അവലോകന യോഗം വിളിച്ചുചേർത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി പരിസ്ഥിതി ഘടകങ്ങൾ രോഗസംക്രമണം തുടങ്ങിയ വിവിധ വശങ്ങൾ ഗവേഷണസംഘം പരിശോധിക്കുമെന്ന് ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ വൃക്തമാക്കി

യു അടുത്ത ജില്ലകളിലും സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നതായും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പതിനേഴാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്നലെയാണ് തുടക്കമായത് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ്സിങ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരും കേന്ദ്രമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു പ്രോടേം സ്പീക്കർ വീരേന്ദ്രകുമാർ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ചില അംഗങ്ങൾ മാതൃഭാഷയിലും ചിലർ സംസ്കൃതത്തിലുമാണ് സത്യവാചകം ചൊല്ലിയത്

മൂന്ന് തീവ്രവാദികൾ പ്രദേശത്ത് ഉള്ളതായി സംശയിക്കുന്നുവെന്ന് സുരക്ഷാവൃത്തങ്ങൾ അറിയിച്ചു ഭീകരർക്കായുള്ള തിരച്ചിൽ മേഖലയിൽ പുരോഗമിക്കുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

പട്രോളിംഗ് സംഘത്തിന്റെ ജാഗ്രതമൂലം ചെറിയ പരുക്കുകളോടെ സൈനികർ സുരക്ഷിതരാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

പിയുടെ വർക്കിംഗ് പ്രസിഡന്റായി മുതിർന്ന നേതാവ് ജെ

ന്യൂഡൽഹിയിൽ നടന്ന പാർലമെന്ററി ബോർഡ് യോഗത്തിലാണ് തീരുമാനമുണ്ടായത് പാർട്ടിയുടെ അംഗത്വിതരണവും സംഘടനാ തെരഞ്ഞെടുപ്പും പൂർത്തിയാകുംവരെ ശ്രീ

അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായതിനെത്തുടർന്നാണ് ശ്രീ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി തവർചന്ദ് ഗെഹ്ലോട്ട് മുതിർന്ന പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു

ഈ വിഷയത്തിൽ ഉടൻ നടപടിയെടുക്കണമെന്ന് ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി പോലീസ് കമ്മീഷണർ അമൂല്യ പട്നായികിനോട് ആവശ്യപ്പെട്ടു നടപടി ആവശ്യപ്പെട്ട് ഇന്നലെ ബി ജെ പി നേതൃത്വം മന്ത്രിയെ കണ്ട് നിവേദനം നൽകിയിരുന്നു

ബോംബെ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് മെഹുൾ ചോക്സി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് വിചാരണയിൽ നിന്നും രക്ഷപ്പെടാനല്ല ഇന്ത്യ വിട്ടതെന്നും ചികിത്സ തീരാത്തതിനാൽ ഇപ്പോൾ മടങ്ങിവരാനാവില്ലെന്നും അഭിഭാഷകർ മുഖേന നൽകിയ സത്യവാങ്മൂലത്തിൽ അറിയിച്ചു

ചോക്സിയെ സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിക്കണമെന്ന് ഇ ഡി വിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു

ബി ഐ യും ഇ ഡി വിഭാഗവും ഇരുവരെയും രാജ്യത്ത് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്

മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും അറിയിച്ചിട്ടുണ്ട് ഇന്ന് കേരളത്തിന് പ്രത്യേകമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല

കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

ചുഴലിക്കാറ്റ് ഇന്ന് വടക്കൻ ഗുജറാത്തിലേക്ക് നീങ്ങുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു വായു ചുഴലിക്കാറ്റ് തിരിച്ചു വരുന്നതിനാൽ കച്ച് ജില്ലയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് ഭുജ്ജിലെ കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം ശാസ്ത്രജ്ഞൻ രാകേഷ് കുമാർ പറഞ്ഞു ജില്ലയിൽ ഗവൺമെന്റ് ദേശീയ ദുരന്ത പ്രതികരണസേനയുടെ അഞ്ച് സംഘങ്ങളെയും രണ്ട് കമ്പനി അതിർത്തി സുരക്ഷാസേനയെയും വിന്യസിച്ചിട്ടുണ്ട് ബേ ഓഫ് കച്ച് വഴി പോകുന്ന കപ്പലുകൾക്കായി കണ്ട്ല മുണ്ട്റ ട്യൂണ തുടങ്ങിയ തുറമുഖങ്ങളിൽ അപകടസൂചന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഏതു സമയത്തും പ്രദേശത്ത് നിന്നും സുരക്ഷിതസ്ഥാനങ്ങളിലേക്ക് മാറാൻ തയ്യാറായിരിക്കണമെന്ന് പ്രദേശവാസികൾക്ക് ഗവൺമെന്റ് നിർദ്ദേശം നൽകി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ചാരക്കേസിൽ വിചാരണ നേരിടുകയായിരുന്ന മുർസി ഇന്നലെ കെയ്റോയിലെ പ്രത്യേക വിചാരണ കോടതിയിലാണ് കുഴഞ്ഞുവീണത്

ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഈജിപ്തിന്റെ ആദ്യ പ്രസിഡന്റാണ് മുസ്ലീം ബ്രദർഹുഡ് എന്ന പാർട്ടിയുടെ നേതാവായ അദ്ദേഹം ഒരു വർഷം മാത്രമാണ് അധികാരത്തിലിരുന്നത് സൈന്യം പിന്നീട് മുർസിയെ അധികാരത്തിൽ നിന്ന് നീക്കുകയും മുസ്തീം ബ്രദർഹുഡിനെ നിരോധിക്കുകയും ചെയ്തു

മുർസി മരിക്കാനിടയായതിൽ തുർക്കി പ്രസിഡന്റ് റസിപ് തച്ചിപ് എർദോഹൻ ഈജിപ്ഷ്യൻ ഭരണാധികാരികളെ വിമർശിച്ചു

മെഡിക്കൽകോളേജുകളിലെയും ആശുപത്രികളിലെയും ജൂനിയർ ഡോക്ടർമാരുടെ പ്രതിനിധികൾ ഇന്നലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി സെക്രട്ടേറിയറ്റിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം സുരക്ഷയെ സംബന്ധിച്ച് ജൂനിയർ ഡോക്ടർമാർ ഉന്നയിച്ച ഒട്ടുമിക്ക ആവശ്യങ്ങളും ഗവൺമെന്റ് അംഗീകരിച്ചു ആശുപത്രികളിലെ ഡോക്ടർമാരെ കയ്യേറ്റം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ആശുപത്രികളിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്നും ശ്രീ മമത ബാനർജി പറഞ്ഞു ചർച്ചയിൽ സംതൃപ്തരാണെന്ന് ജൂനിയർ ഡോക്ടർമാർ അറിയിച്ചു

ജസ്റ്റിസ്റ്റ് ദ്വീപ്ക് ഗുപ്ത ജസ്റ്റിസ് സൂര്യകാന്ത് എന്നിവരടങ്ങിയ അവധിക്കാ്ലൂ ബ്ഞ്ചാണ് കേസ് പരിഗണിക്കുക രാജ്യത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സു്ത്ക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു

ഐ നിയന്ത്രണത്തിലുള്ള കൺസോർഷ്യം തീരുമാനിച്ചു ജെറ്റ് എയർവെയ്സിന്റെ രക്ഷാപാക്കേജ് തീരുമാനിക്കാനുള്ള ചുമതല കൺസോർഷ്യമാണ് ഏറ്റെടുത്തിരുന്നത് കമ്പനി നഷ്ടത്തിലായതിനെ തുടർന്ന് രക്ഷാപാക്കേജിനായി ഇൻസോൾവൾസി ആന്റ് ബാങ്ക്റപ്സി നിയമപ്രകാരമാണ് ജെറ്റ് എയർവെയ്സിനെ പുനരുദ്ധരിക്കാൻ നടപടി തുടങ്ങിയത് ജെറ്റ് എയർവെയ്സിന് വായ്പ നൽകിയ ഷമാംവീൽസ് ഗാഗർ എന്റർപ്രൈസസ് എന്നിവ കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കമ്പനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ നിക്ഷേപകരോടും നിർദ്ദേശിച്ചിട്ടുണ്ട്

നിരവധി ചെറുപ്പക്കാർ ഇപ്പോൾ യോഗയെ തൊഴിൽ സാധ്യതയായി കണ്ട് യോഗ പഠിപ്പിക്കുന്നതിനും യോഗയുടെ പ്രൊഫഷണൽ കോഴ്സുകളിൽ ചേരുന്നതിനും താൽപര്യം പ്രകടിപ്പിക്കുന്നതായ മൊറാർജി ദേശായി യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ഡോ

യോഗ ഒട്ടേറെ തൊഴിൽ അവസരങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

ലോകത്തെ സുപ്രധാന ഭക്ഷ്യ വ്യവസായ കേന്ദ്രമാണ് ഇന്ത്യ എന്നതിന്റെ തെളിവാകും സംഗമം ഭക്ഷ്യരംഗത്തെ വൻകിട ഉൽപാദകരുടെയും നിക്ഷേപകരുടെയും സംഗമമാണ് നടക്കുന്നതെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു

സി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മൽസരത്തിൽ ബംഗ്ലാദേശ് ഏഴ് വിക്കറ്റിന് വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി